കഴിഞ്ഞ ശനിയാഴ്ച മരിച്ച തിരുവനന്തപുരം സ്വദേശിക്കും രോഗം സ്ഥിരീകരിച്ചു

സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു

രണ്ടാംഘട്ട ലോക്ഡൌൺ ഇളവുകൾ നിലവിൽ വരുന്നതിന് മുന്നോടിയായി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

രാജ്യം ട് ഒരു ഒരു റേഷൻ കാർഡ് പദ്ധതി കുടിയേറ്റ തൊഴിലാളികൾക്ക് തുണയാകുമെന്നും പ്രധാനമ്പ്രെത്തി പറഞ്ഞു

വോയ്സ് കോവിഡ് പ്രതിരോധത്തിൽ രാജ്യം മെച്ചപ്പെട്ട നിലയിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പറഞ്ഞു രാജ്യത്ത് കൃത്യസമയത്ത് ലോക്ഡൌൺ പ്രഖ്യാപിച്ചത് മരണനിരക്ക് കുറയ്ക്കാൻ സഹായിച്ചു കൊറോണ വൈറസ് മൂലമുള്ള മരണ നിരക്ക് മറ്റ് രാജൃങ്ങളെ അപേക്ഷിച്ച് ഇന്തൃയിൽ വളരെ കുറവാണ് എന്നാൽ അൺലോക്ക് ഒന്നാംഘട്ടം നിലവിൽ വന്നശേഷം ജനങ്ങളിൽ ജാഗ്രത കുറവ് കണ്ട് വരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു നിലവിലുള്ള കോവിഡ് മാർഗ്ഗ നിർദ്ദേശങ്ങൾ പാലിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും ജാഗ്രതയിൽ അലംഭാവം ഉണ്ടാകരുതെന്നും ശ്രീ നരേന്ദ്ര മോദി ഓർമ്മിപ്പിച്ചു ശാരീരിക അകലം പാലിക്കൽ മുഖാവരണം ധരിക്കൽ എന്നിവ ്കർശനമായി പാലിക്കണം

കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച രണ്ടാംഘട്ട ലോക്ഡൌൺ ഇളവുകൾ സംബന്ധിച്ച മാർഗ്ഗരേഖ നാളെ പ്രാബലൃത്തിലാവുകയാണ്

നിരക്ക് കോവിഡ് പ്രതിരോധിക്കുന്നതിൽ സംസ്ഥാന സർക്കാരുകളുടേയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടേയും ജനങ്ങളുടേയും കൂട്ടായ പരിശ്രമം തുടർന്നും ഉണ്ടാകണം

ഇത്തരം രോഗങ്ങൾക്കെതിരെ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

നരേന്ദ്ര മോദിയുട പ്രഖ്യാപനം രാജൃത്തെ ദരിദ്ര വിഭാഗങ്ങൾക്ക് ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു

ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭാരത് ബയോടെക്കാണ് ദേശീയ വൈറോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ സി എം ആർ എന്നിവയുമായി ചേർന്ന് മരുന്ന് വികസിപ്പിച്ചത് വിവിധ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ടാംഘട്ട മൂന്നാംഘട്ട പരീക്ഷണങ്ങൾക്കായി വാക്സിൻ മനുഷ്യരിൽ ഉപയോഗിക്കാൻ ദേശീയ ഡ്രഗ് കൺട്രോളർ ജനറലും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും അനുമതി നൽകി

ഇന്ത്യാ ചൈന നിയന്ത്രണ രേഖയിലെ പ്രശ്നങ്ങൾ ചർച്ചയാകുമെന്ന് കരുതുന്നുതായി രാജ്യരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു മറ്റ് മേഖലാ അന്താരാഷ്ട്ര വിഷയങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്യും

കഴിഞ്ഞ ശനിയാഴ്ച ക്രിക്കിരുവനന്തപുരത്ത് മരിച്ച തങ്കപ്പൻ എന്നയാൾക്ക് കോവീഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ വകുപ്പ് വൃക്തമാക്കി

എസ് എൽ

ഏറ്റവും ഉയർന്ന വിജയശതമാനമുള്ള റവന്യൂ ജില്ല പത്തനംതിട്ടയാണ്

നിർമാണം അടിസ്ഥാന സൌകര്യ വികസനം എന്നീ മേഖലകളിലുൾപ്പെടെ ഉരുക്കുപയോഗം വർധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളെപ്പറ്റി ന്യൂഡൽഹിയിൽ നടന്ന വെബിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിങിനെഴുതിയ കത്തിലാണ് ഫ്രാൻസ് പ്രതിരോധ മന്ത്രി അനുശോചനം അറിയിച്ചത്

കേന്ദ്ര വിദേശകാര്യ മന്ത്രി എസ്